പാരമ്പര്യമെന്നും ഈ വർഷം തന്നെ രാജ്യം പുതിയ ഉയരങ്ങളിലെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൺലോക്കിലും ജാഗ്രത തുടരണമെന്നും മൻ കി ബ്രി്തി്ൽ പ്രധാനമന്ത്രി

എണ്ണം രണ്ടായിരത്തിലേക്കടുക്കുന്നു തലസ്ഥാന നഗരീയിൽ കടുത്ത നിയന്ത്രണം ന് ആവശ്യമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തൽക്കാലം നഗരം അടച്ചിടേണ്ടതില്ലെന്നും മന്ത്രി

രണ്ട് ലക്ഷത്തിലധികം പേർ ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞു

എസ് എൽ

മറ്റന്നാൾ

മോദി പറഞ്ഞു

സാമൂഹിക ൃഅ്കൂലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്തില്ലെങ്കിൽ സ്വന്തം ജീവനൊപ്പം മറ്റുള്ളവരെ കൂടി അപകടത്തിൽ രൂപ്പെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

കുട്ടികൾ മുതിർന്നവരോട് സംസാരിച്ച് പഴ്ചയ സംസ്കാരം മനസിലാക്കണമെന്നും ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന പ്രതിമകൾ പരിസ്ഥിതി സൌഹാർദ്ദമായിരിക്കണമെന്നും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ജനങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ ശീലമാക്കണമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു മുൻ പ്രധാനമന്ത്രി പി

നരസിംഹ റാവുവിന്റെ ജൻമശതാബ്ദി ആഘോഷം ആരംഭിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു

ഇതേ തുടർന്ന് എടപ്പാൾ വട്ടംകുളം മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഇതിനെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചു

കാഞ്ഞാണി അരിമ്പൂർ ഭാഗത്ത് നിന്ന് ബ്ലിൽ കയറിയവർ ഉടൻ തന്നെ ആരോഗ്യ വകുപ്പുമായി ബ്ന്ധപ്പെടണം

ബസ്സിൽ യാത്ര ചെയ്തവർ അതിരു പ്രദേശത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പറ്റിൽ ് ഉടൻ അറിയിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്

രണ്ട് ലക്ഷത്തിലധികം പേരാണ് നിലവിൽ കോവിഡ് ചികിൽസയിലുള്ളത്

എസ് എൽ സി പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും

ആലപ്പുഴ കോവിഡ് ആലപ്പുഴ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച വൃക്തികൾ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയതിനാൽ കായംകുളം നഗരത്തിൽ ഇന്ന് ലോക് ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്